പ്രധാനമന്ത്രി നരേന്ദ്രമോദി തായ്ലന്റ് മ്യാൻമർ സമാപനം

നഴ്സുമാരും ഉൾപ്പെടുന്ന കേന്ദ്ര സംഘം ഇന്ന് കേരളത്തിലെ പ്രളയബാധിത പ്രദേശങ്ങളിൽ

സമാപിച്ച ഇന്നലെ ഇന്ത്യയുടെ ജിൻസൺ ജോൺസനും വനിതകളുടെ റിലേ ടീമിനും സ്വർണം

ഏഴ് അംഗരാഷ്ട്രങ്ങളായ ബംഗ്ലാദേശ് ഭൂട്ടാൻ ഇന്ത്യ മ്യാൻമാർ നേപ്പാൾ ശ്രീലങ്ക തായ്ലന്റ് എന്നീ രാഷ്ട്രങ്ങളിലെ തലവൻമാർ കാഠ്മണ്ഡു പ്രഖ്യാപനം കൈക്കൊള്ളും ബിംസ്റ്റെക് ഗ്രിഡ് ബന്ധിപ്പിക്കുന്നതിനുള്ള രൂപരേഖയിൽ നേതാക്കൾ ഇന്ന് ഒപ്പുവയ്ക്കും ബിംസ്റ്റെകിന് വൃക്തമായ കാഴ്ചപ്പാടോടെയുള്ള ശക്തമായ അടിത്തറ സൃഷ്ടിക്കാൻ ഈ ഉച്ചകോടിയിലൂടെ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി വിദേശകാര്യ സെക്രട്ടറി വിജയ് ഗോഖലെ അറിയിച്ചു ഉച്ചകോടിക്കിടെ തായ്ലന്റ് മ്യാൻമാർ ഭൂട്ടാൻ എന്നീ രാഷ്ട്രങ്ങളിലെ തലവൻമാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും വൈകുന്നേരം നേപ്പാൾ പ്രധാനമന്ത്രി കെ

ശർമ്മ ഒലിയുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും

കേരളത്തിലെ പ്രളയാനന്തര രക്ഷാപ്രവർത്തനങ്ങൾ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ

നദ്ദ മുതിർന്ന ഉദ്യോഗസ്ഥരോടൊപ്പം ഇന്നലെ വിലയിരുത്തി പകർച്ച വ്യാധികൾ പൊട്ടി പുറപ്പെടാനുള്ള സാധൃതയുള്ളതിനാൽ കേരളത്തിലെ രോഗങ്ങളുടെ കണക്ക് കേന്ദ്രൂ സൂക്ഷമായി നിരീക്ഷിച്ചു വരികയാണെന്ന് ഔദ്യോഗിക് വാർത്താ കുറിപ്പിൽ പറയുന്നു എലിപ്പനി ഡയറിയ ഡെങ്കു എന്നിവയുടെ വ്യാപനത്തിനുള്ള സാധ്യതകൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് സംസ്ഥാന മന്ത്രാലായത്തിനൊപ്പം കേന്ദ്രം ഇതും വിലയിരുത്തുകയാണ് സംസ്ഥാന ആരോഗ്യമന്ത്രി കെ

നദ്ദ സംസാരിക്കുകയും തുടർ ്പിൻതുണ പ്രഖ്യാപിക്കുകയും ചെയ്തു

ഈ പദ്ധതി പ്രകാരം ഉപഭോക്താക്കൾക്ക് ഉടൻതന്നെ കണക്ഷൻനൽകാൻ എല്ലാ എണ്ണകമ്പനികൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേന്ദ്ര ടൂറിസം സഹമന്ത്രി ശ്രീ അൽഫോൻസ് കണ്ണന്താനം ന്യൂ ഡൽഹിയിൽ അറിയിച്ചതാണ് ഇക്കാര്യം

കർണ്ണാടകത്തിലെ ഗവൺമെന്റ് ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ് കുടകിലെ പ്രളയത്തെ തുടർന്ന് സോമവാർ പേട്ട വിരാജ് പേട്ട കുശാൽ നഗർ എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ മാറ്റിയിരുന്നു

വ്യവസായിക രംഗത്ത് തൊഴിൽ നൈപുണ്യമുള്ളവരുടെ വർദ്ധിച്ചുവരുന്ന ആവശ്യത്തെക്കുറിച്ച് ഗവൺമെന്റ് ചർച്ച ചെയ്യുന്നതായും അദ്ദേഹം പറഞ്ഞു ദേശീയ നൈപുണ്യ വികസന കോർപ്പറേഷന്റെ അംഗീകൃത ട്രെയിനിംഗ് സെന്ററുകളെ തൊഴിൽ ദാതാക്കളുമായി ബന്ധിപ്പിക്കുന്നതിനും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമുള്ള സ്കിൽ കണക്റ്റ് പദ്ധതിക്ക് തുടക്കം കുറിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി

കുടൂതൽ വിവരങ്ങളുമായി സുരേഷ്

ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു

പുതിയ സമഗ്ര വ്യാപാര വികസന കേന്ദ്രമായ ധർമ്മപാദ ഭപ്പൂനിൽ സ്ഥാപിച്ചിട്ടുള്ള പൊതു സേവന കേന്ദ്രം പട്ടികജാതി പ്പട്ടികവ്ർഗ്ഗ സംരംഭകർക്ക് ആവശ്യമായ വിവരങ്ങളും പരിശ്വീൽസപ്പും നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു ദേശീയ ചെറുകിട വൃവസായി കോർപ്പറേഷനും സാപ് ഇന്ത്യയും തമ്മിൽ ഒപ്പുവച്ച ധാരണാപ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നൂതന സോഫ്റ്റ്വെയറിലൂടെ സംരംഭകർക്ക് വേണ്ട സേവനം ലഭ്യമാക്കുമെന്ന് കേന്ദ്ര ഗിരിവർഗ്ഗക്ഷേമ വകുപ്പ് മന്ത്രി ജുവൽ ഒറം അറിയിച്ചു ആദിവാസി മേഖലകളിലെ കാർഷിക വിളകളും വന വിഭവങ്ങളും വിൽക്കുന്നതിനുള്ള പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ അദ്ദേഹം പുതിയ സംരംഭകരോട് നിർദ്ദേശിച്ചു

പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ചേർന്ന് ഉദ്ഘാടനം ചെയ്യും വൃന്ദാവനിലാണ് ആയിരം പേർക്ക് താമസിക്കാവുന്ന കൃഷ്ണകുടീർ ഒരുക്കിയിട്ടുള്ളത് കേന്ദ്ര മന്ത്രാലയത്തിന്റെ സ്വധർ ഗ്രഹ് സ്കീമിൽ ഉൾപ്പെടുത്തിയാണ് കേന്ദ്രം ഇത് നിർമ്മിച്ചത്

നാഷണൽ ബിൽഡിംഗ് കോർപ്പറേഷനാണ് രൂപകൽപ്പന പ്രത്യേക അടുക്കള ഉൾപ്പെടെ ആധുനിക സൌകര്യങ്ങൾ ഉള്ളസഹായ കേന്ദ്രം മുതിർന്ന പൌരൻമാർക്കും ഭിന്നശേഷിക്കാർക്കും സൌകര്യപ്രദമാണ് കേന്ദ്ര സഹായത്തോടെ പ്രവർത്തിക്കുന്ന കൃഷ്ണ കുടീരിന്റെ പരിപാലനം സംസ്ഥാന ഗവൺമെന്റിനാണ്

ധനമന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറി സമീർ കുമാർ ഖാരെയും എ ഡി ബിയുടെ ഇന്ത്യൻ റസിഡന്റ് മിഷൻ കൺട്രി ഡയറക്ടർ കെനിച്ചി യോക്കോയാമയും തമ്മിലാണ് വായ്പ കരാറിൽ ഒപ്പുവച്ചത് സാമ്പത്തിക വളർച്ച നിലനിർത്തുന്നതിനും വികസന ആവശ്യങ്ങൾ സാധ്യമാക്കുന്നതിനും കർണ്ണാടകത്തിന് അടിസ്ഥാന സൌകര്യ വികസനം ആവശ്യമാണെന്നും ശ്രീ ഖാരെ പറഞ്ഞു

നവീനാശയങ്ങൾ പ്രോൽസാഹിപ്പിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള അടൽ റാങ്കിങ്ങ് പദ്ധതിക്കും കേന്ദ്രമന്ത്രി തുടക്കം കുറിച്ചു നവീനാശയങ്ങൾ പ്രോൽസാഹിപ്പിക്കുന്ന സംസ്കാര രാജൃത്തുണ്ടാവണമെന്ന് ശ്രീ പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു കൃാമ്പസുകളിൽ ആരംഭിക്കുന്ന ഇന്നവേഷൻ കൃാമ്പുകൾക്ക് ഗവൺമെന്റ് എല്ലാ സഹായങ്ങളും ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി

വെങ്കയ്യ നായിഡു ഓർമ്മിപ്പിച്ചു ഗവൺമെന്റുകളെയും രാഷ്ട്രീയ പാർട്ടികളെയും ശാസ്ത്രജ്ഞരെയും മാധ്യമങ്ങളെയും ഇ്ക്കാര്യത്തിൽ അദ്ദേഹം ഉപദേശിച്ചു രണ്ടാമത് ഗ്രാമീണ സംരംഭകരുടെ സ്റ്റാർട്ട് അപ് കോൺക്ലേവ് ഹൈദരാബാദിൽ ഉദ്ഘാട്ട്ന്ം ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി ദേശീയ ഗ്രാമീണ വികസന ഇൻസ്റ്റിറ്റ്യൂട്ടും പഞ്ചായത്തി രാജുമാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത് ജല വിതരണം സാങ്കേതിക വികസനം വായ്പ ഇൻഷറൻസ് സാങ്കേതിക ജ്ഞാനം എന്നീ അഞ്ച് കാര്യങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതെന്നും ഗ്രാമീണരുടെ സാങ്കേതിക മികവിനെ വളർത്തിയെടുക്കുന്നതിന് സ്വകാരൃ മേഖലയുടെ പങ്കാളിത്തം പ്രധാനമാണെന്നും ശ്രീ വെങ്കയ്യ നായിഡു പറഞ്ഞു

എസ്

നേതാക്കൾ മേഖലാ തല പ്രശ്നങ്ങളും തന്ത്രപരമായ വിഷയങ്ങളും ചർച്ച ചെയ്യുമെന്ന് അമേരിക്കയുടെ ഏഷ്യ പസഫിക് സുരക്ഷാകാരൃ അസിസ്റ്റന്റ് സെക്രട്ടറി റൺഡൽ ജി

ഈ കൂടിക്കാഴ്ചയെ ചരിത്രപരമെന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം അഫ്ഗാൻ വിഷയം നേതാക്കൾ ചർച്ച ചെയ്യുമെന്നും ഒരു രാഷ്ട്രീയ ഒത്തുത്തീർപ്പിൽ എത്താൻ ഇതുവഴി സാധിക്കുമെന്നും പറഞ്ഞു പ്രതിരോധ മേഖലയിൽ ഇരു രാജ്യങ്ങളും നിരവധി കരാറുകളുടെ പണിപുരയിലാണെന്നും പെൻടഗൺ വക്താവ് പറഞ്ഞു

രജനീകാന്ത് നായകനായ കാലായ്ക്ക് ശേഷം ഗൾഫിൽ റിലീസ് ച്ചെയ്ത് ചിത്രമാണ് ഗോൾഡ് ഈ വർഷം മേയിൽ ബ്ലാക്ക് പാന്തർ എന്ന് ചലച്ചിത്രം റിലീസ് ചെയ്താണ് സൌദി ആദ്യമായി രാജ്യത്ത് പൊതു സിനിമ പ്രദർശനം ആരംഭിച്ചത്

നൂറോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് തലസ്ഥാനമായ ട്രിപ്പോളിയിൽ ദിവസങ്ങളായി ഇരു വിഭാഗങ്ങളും ഏറ്റുമുട്ടുകയാണ്

സമാധാനത്തിനായുള്ള ഐക്യരാഷ്ട്ര സഭയുടെ അഭ്യർത്ഥന മാനിക്കാതെയാണ് ഇവിടെ ഏറ്റുമുട്ടൽ നടക്കുന്നത്

വനിതകളുടെ ഡിസ്കസ് ത്രോയിൽ സീമാ പ്രുനിയയും വെങ്കല നേട്ടം സ്വന്തമാക്കി